ബിജെപി സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരൃട്നം ഈയാഴ്ച്ച തന്നെ തുട ങ്ങും

ള്ള ൽ ഗോവയിൽ ബിജെപി നേതാവ് പ്രമോദ് സാവന്ത് പുതിയ മുഖ്യമ ന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു നിയമസഭാ സ്പീക്കറായിരുന്നു അദ്ദേഹം

മനോഹർ പരീക്കർ മന്ത്രിസഭയിലുണ്ടാ യിരുന്ന എല്ലാ മന്ത്രിമാരും പുതിയ മന്ത്രിസഭയിലുമുണ്ട് ബിജെപി യിലേയും എംജിപി യിലേയും ജിഎഫ്പി യിലേയും അംഗങ്ങളാണ് എല്ലാവരും രണ്ട് കക്ഷിരഹിതരും മന്ത്രിമാരായി ഘടകകക്ഷിക ളായ ഗോമന്തക് പാർട്ടിയുടേയും ഗോവ ഫോർവേർഡ് പാർട്ടിയു ടേയും ഓരോ അംഗങ്ങൾ ഉപമുഖ്യമന്ത്രിമരായും സ്ഥാനമേറ്റു കേന്ദ്രമന്ത്രി നിധിൻ ഗഡ്ഗരിയുടെ സാന്നിധൃത്തിൽ പലവട്ടം യോഗം ചേർന്ന ശേഷമാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാ നമായത്

പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മറ്റി യോഗത്തിന് ശേഷമായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം

ഒഡീഷ നിയമസഭാ തെര ഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളേയും തെരഞ്ഞെടുപ്പ് സമിതി പ്രഖ്യാ പിച്ചു വയനാടിന്റേയും വടകരയുടേയും പേരിൽ കോൺഗ്രസിലെ ശേഷിക്കുന്ന നാല് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകു ന്നു വയ നാ ടിന് വേണ്ടി കോൺഗ്ര സിലെ എ വിഭാഗം ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതോടെ ഡിസിസി പ്രസി ഡന്റ് കൂടിയായ ടി

സിറ്റിങ്ങ് എംപി കൂടിയായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വടകരയിൽ മത്സരിക്കണ മെന്ന് പാർട്ടി നേതൃത്വം അദ്ദേഹത്തോട് ആവശൃപ്പെട്ടെങ്കിലും മത്സ രിക്കില്ലെന്ന നിലപാട് മുല്ലപ്പള്ളി ആവർത്തിച്ചു

ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും മത്സരിക്കാൻ ഏകദേശ ധാരണയായി ഔദ്യോഗിക പ്രഖ്യാ പനം ഇന്ന് ഉണ്ടായേക്കും അതിനിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നാവ ശൃപ്പെട്ട് എംഎൽഎമാരായ വി

ബൽറാമും കെ

ഷാജിയും ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ബിജെപി സ്ഥാനാർത്ഥികളെ കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിക്കും ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ മര ണത്തെ തുടർന്ന് ഇന്നലെ മാറ്റിവെച്ച പാർട്ടി കേന്ദ്രി തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് വൈകീട്ട് ന്യൂഡൽഹിയിൽ ചേരും

പാർട്ടി സംസ്ഥാന ഘടകം നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്നത്തെ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് ബിജെപി കേന്ദ്ര ങ്ങൾ നൽകുന്ന സൂചന പത്തനംതിട്ടയിൽ സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് റിപ്പോർട്ട് എൻഡിഎ ഘടകകക്ഷിയായ ബിഡിജെഎസി ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടായേക്കും പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കുമെന്നാണ് സൂചന തൃശൂർ അടക്കം അഞ്ച് മണ്ഡലങ്ങളിലാണ് ബിഡിജെഎസ് മത്സരി ക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എൽഡിഎഫ് ഒന്നാംഘട്ടം പിന്നിട്ടു പാർലമെന്റ് അസംബ്ലി മണ്ഡലം കൺവെൻഷനുകൾക്ക് ശേഷം ബൂത്ത്തല കൺവെൻഷനുകൾ അവ സാന ഘട്ടത്തിലാണ്

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ പട്ടിക വർഗ്ഗ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന തെര ഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് മൂഴിയാറിലും ഗവിയിലും തെരുവ് നാടകം സംഘടിപ്പിക്കും രാവിലെ അട്ടത്തോട് സാംസ്കാരിക നിലയത്തിലും ന ഉച്ചക്ക് ശേഷം അരയാഞ്ഞിലിമണ്ണിലുമാണ് പരിപാടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരാണർത്ഥം ഇടുക്കി കളക്ട്രേ റ്റിൽ മാതൃകാ പോളിങ്ങ് സ്റ്റേഷൻ തുറന്നു വോട്ടിങ്ങ് യന്ത്രവും വിവി പാറ്റ് സംവിധാനവും വോട്ടർമാരെ പരിചയപ്പെടുത്താനും തെരഞ്ഞെ ടുപ്പിന്റെ പ്രാധാനൃം ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് മാതൃകാ പോളിങ്ങ് സ്റ്റേഷൻ ആരംഭിച്ചത് ദേവികുളം ആർഡിഒ ഓഫീസിലും മാതൃകാ പോളിങ്ങ് സ്റ്റേഷൻ തുടങ്ങിയിട്ടുണ്ട് ജില്ലയിൽ വോട്ടർ ബോധവൽക്കരണത്തിനായി വോട്ട് വണ്ടിയുടെ പരൃടനം ഇന്ന് തുട ങ്ങും

ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കാനും ജില്ലാ ഭരണകൂടം നിർദേശം നൽകി എൻസിഇആർടിയുടെ ഒൻപതാം ക്ലാസ് ചരിത്ര പുസ്തകത്തിൽ നിന്ന് ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട പാഠഭാഗം ഒഴിവാക്കിയ നടപടിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപലപിച്ചു നവോത്ഥാന മുന്നേറ്റങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നാടാർ വനിതകൾ നടത്തിയ മാറുമറയ്ക്കൽ സമരവും അതുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളും ഒഴി വാക്കിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ചരിത്ര പുസ്തകങ്ങളെ തെറ്റായ രീതിയിൽ മാറ്റിയെഴുതുന്ന സംഘപരിവാർ കാഴ്ച്ചപാടുക ളുടെ പ്രതിഫലനമാണ് നടപടിയെന്നും മുഖ്യമന്ത്രി വാർത്താ കുറി പ്പിൽ പറഞ്ഞു

ഉദ്ഘാടന മത്സരത്തിൽ നിലവിൽ ചാമ്പ്യൻമാരായ ചെന്നൈ സൂപ്പർ കിങ്ങ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും രാത്രി എട്ടിന് ചിദംബരം സ്റ്റേഡി യത്തിലാണ് മത്സരം കഴിഞ്ഞ വർഷത്തെ എട്ട് ടീമുകളാണ് ഇത്തവ ണയും മത്സരത്തിന് ഇന്തൃയുടെ സമുദ്രാതിർത്തി സംരക്ഷിക്കാൻ നാവിക സേന പൂർണ സജ്ജമെന്ന് സേനാ മേധാവി അഡ്മിറൽ സൂനിൽ ലാംബ വ്യക്തമാക്കി കൊച്ചിയിൽ നാവിക സേനയുടെ ട്രോപെക്സ് യുദ്ധ പരിശീലന പരിപാടി വിലയിരുത്താൻ ചേർന്ന കമാന്റർമാരുടെ യോഗ ത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ന്യൂസിലന്റിൽ ഭീകരാക്രമണത്തിൽ മരിച്ച തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിനി ആൻസിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാ നട പടികളും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഇന്നലെ കൂടും ബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരി ക്കുകയായിരുന്നു അദ്ദേഹം നോർക്ക വഴിയാണ് ഇടപെടൽ നടത്തു ന്നത്

കൊളത്തറ എരഞ്ഞിക്കൽ സ്വദേശി യാസിർ അറാ ഫത്താണ് അറസ്റ്റിലായത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കഞ്ചാവെത്തിച്ച് ചില്ലറ വിൽപ്പനക്കാർക്ക് വിൽക്കുന്നയാളാണ് ഇയാ ളെന്ന് പൊലീസ് പറഞ്ഞു കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹതയുമായി ബന്ധപ്പെട്ട് സിബിഐയുടെ നുണ പരിശോധന ഇന്നാരംഭിക്കും

എറണാകുളം സിബിഐ ഓഫീസിൽ ഇന്നും നാളെയുമായി നുണ പരിശോധന പൂർത്തിയാക്കാനാണ് തീരുമാനം കോഴിക്കോട് ചാത്തമംഗലത്ത് പൊലീസിന്റെ വാഹന യാർഡിന് തീപിടിച്ച് ഒട്ടേറെ വാഹനങ്ങൾ കത്തിനശിച്ചു റോഡപകടങ്ങളിലും നിയമലംഘനങ്ങളിലും പിടികൂടുന്ന വാഹനങ്ങൾ സൂക്ഷിക്കുന്ന യാർഡിലാണ് ഇന്നലെ ഉച്ചക്ക് ശേഷം തീപിടുത്തം ഉണ്ടായത്

അഗ്നിശമന സേനയും പൊലീസും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കണ്ണൂർ ജില്ലയിലെ ബീഡിത്തൊഴിലാളികളുടെ ബോണസ് തർക്കം ഒത്തുതീർപ്പായി ലേബർ ഓഫീസറൂടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് പ്രശ്ന പരിഹാരമായത്

വിഷുവിന് മുമ്പ് ബോണസ് വിതരണം ചെയ്യാനും തീരു മാനമായി സ്ത്രീകൾ അതിജീവനത്തിന്റെ പാതയിലാണെന്നും അതിനിടെ യുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് വനിതാ കമ്മീഷന്റെ ചുമ തലയാണെന്നും കമ്മീഷനംഗം ഡോ

പത്തനംതിട്ടയിൽ വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ പെരുമ്പാവൂർ കുറുപ്പുംപടിയിൽ പൊലീസുകാരൻ വാഹനാപ കടത്തിൽ മരിച്ചു പെരുമ്പാവൂർ പൊലീസ് സ്റ്റേഷനിലെ സിവിൽ പൊലീസ് ഓഫീസർ സുനിൽകുമാറാണ് രാത്രി ബൈക്കിൽ വാനി ടിച്ച് മരിച്ചത് മലപ്പുറത്ത് ഒരാൾക്ക് സൂര്യതാപം ഏറ്റു